റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ സംസ്ഥാന തല ബാങ്കേഴ്സ് സമിതി ഇതുസംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കാത്ത സാഹ ചര്യത്തിലാണ് മൊറട്ടോറിയം കാലാവധി ഇന്ന് അവസാനിക്കുന്നത് റിസർവ് ബാങ്ക് അനുമതി ഇന്ന് ലഭിക്കുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നേരത്തെ മുംബൈയിൽ റിസർവ് ബാങ്ക് ഗവർണറെ കണ്ട് മൊറട്ടോറിയം കാലാവധി നീട്ടാൻ അനു മതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അട്ട്ട്ട്ട്ട്ട്ട്ട സംസ്ഥാനത്ത് പ്രളയാനന്തര കേരളത്തിന്റെ പുനർ നിർമ്മാണത്തിന് പണം കണ്ടെത്താൻ ഏർപ്പെടുത്തിയ ഒരു ശതമാനം സെസ് നാളെ നില വിൽവരും ആയിരം കോടി സമാഹരിക്കാൻ ലക്ഷ്യമിട്ട് രണ്ടുവർഷത്തേ ക്കാണ് സെസ് ഏർപ്പെടുത്തുന്നത്

നിരോധന കാലയളവിൽ മത്സ്യബന്ധന ത്തിനെത്തിയ അന്യദേശ വള്ളക്കാർ മടങ്ങിപ്പോകണമെന്ന് ഫിഷറീസ് വകുപ്പ് ആവശ്യപ്പെട്ടു

ഇന്ത്യൻ മെഡിക്കൽ അസോസി യേഷന്റെ ആഹ്വാനപ്രകാരം നാളെ രാവിലെ ആറുമണി വരെയാണ് പണിമു ടക്ക് ഗവൺമെന്റ് സ്ഥകാര്യ മേഖലകളിലെ ഡോക്ടർമാർ പങ്കെടുക്കുന്നു ണ്ട് അത്യാഹിതം തീവ്രപരിചരണം പ്രസവം തുടങ്ങിയ വിഭാഗങ്ങളെ സമ രത്തിൽ നിന്ന് ഒഴിവാക്കി അലോപ്പതി ഇതര ഡോക്ടർമാരെ ആധുനിക ചികിത്സ് നടത്താൻ അനുവദിക്കുന്നതിനും എം ബി

എസ് അവസാന വർഷ പരീക്ഷ പി ജി പ്രവേശന പരീക്ഷയായി കണക്കാക്കുന്നതിനും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം

ജി സിദ്ധാർത്ഥ് ഹെഗ്ഡെയുടെ മൃതദേഹം നേത്രാവതി നദിയിൽ നിന്നും കണ്ടെത്തി തിങ്കളാഴ്ച രാത്രിയോടെ മംഗ ളുരു നേത്രാവതി പാലത്തിന് സമീപം അദ്ദേഹത്തെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയായിരുന്നു

തീരസംരക്ഷണ സേനയും നാവികസേനയും ദുരന്ത നിവാരണ സേനയും സിദ്ധാർത്ഥക്കായി തെരച്ചിൽ ഊർജ്ജിതമാക്കിയതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്

ആദായനികുതി വകുപ്പിന്റെ പീഡനം മൂലമാണ് സിദ്ധാർത്ഥയുടെ മരണമെന്ന് ആരോപിച്ചാണ് അടിയന്തര പ്രമേയ നോട്ടീസ് രുട്ട്ട്ട്ട്ട്ട്ട്ട മലങ്കര സഭാതർക്കത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നാളെ വിളിച്ച ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഓർത്തഡോക്സ് സഭ അറിയിച്ചു സുപ്രീംകോടതി വിധി നിലനിൽക്കെ നടത്തുന്ന സമവായ ചർച്ചകൾ കോടതിയലക്ഷ്യമാകുമെന്ന നിലപാട് മാറ്റാനാവില്ലെന്ന് സഭാ വക്താക്കൾ കോട്ടയത്ത് അറിയിച്ചു തർക്കം നിലനിൽക്കുന്ന ചില പള്ളികളിൽ ഓർത്തഡോക്സ് വിഭാഗം പ്രവേശിച്ചതിനെ തുടർന്നാണ് ഗവൺമെന്റ് വീണ്ടും യാക്കോബായ ഓർത്തഡോക്സ് സഭകളെ ചർച്ചക്ക് വിളിച്ചത് മുൻപ് നടത്തിയ ചർച്ചയിൽ നിന്നും ഓർത്തഡോക്സ് വിഭാഗം വിട്ടു നിന്നിരുന്നു രുമെട്ടിട്ടുള്ള പ്ര തൃശൂർ ചാവക്കാട് പുന്ന സെന്ററിൽ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചു പുന്നയിലെ കോൺഗ്രസ് ബൂത്ത് പ്രസി ഡന്റായിരുന്ന പുതവീട്ടിൽ നൌഷാദാണ് മരിച്ചത് ഇന്നലെ രാത്രിയോടെയാണ് നൌഷാദ് ഉൾപ്പെടെ നാലുപേരെ ബൈക്കിലെത്തിയ പതിനഞ്ചംഗ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പരിക്കേറ്റ ഒരാളുടെകൂടി നില ഗുരുതരമാണ് ആക്ര മണത്തിന് പിന്നിൽ എസ്

ഐ പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് ചാവക്കാട് ഗുരുവായൂർ നഗര സഭാ പരിധിയിലും ഒരുമനയൂർ കടപ്പുറം ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളിലും കോൺഗ്രസ് ഹർത്താലിനാഹ്വാനം ചെയ്തു രുട്ട്ട്ട്ട്ട്ടിട്ട തൃശൂർ ചാവക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്ത ല ആവശ്യപ്പെട്ടു കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നും അദ്ദേഹം തിരുവ നന്തപുരത്ത് ആവശ്യപ്പെട്ടു രുടെട്ടിടു കോൺഗ്രസിലെ പ്രതിസന്ധി ഓരോ ദിവസവും കൂടിവരികയാണെന്ന് പാർട്ടി നേതാവ് ശശി തരൂർ എം

അധ്യക്ഷന്റെ കാര്യ ത്തിൽ ഉടൻ തീരുമാനമായില്ലെങ്കിൽ കോൺഗ്രസിന് ഭാവിയില്ലെന്ന് കരുതു ന്നവർ ഇനിയും പാർട്ടി വിട്ടുപോകാമെന്ന് അദ്ദേഹം ഒരു വാർത്താ ചാനലി നോട് പറഞ്ഞു

പ്രിയങ്ക ഗാന്ധിയാണെങ്കിലും സംഘടനാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുവേണം കോൺഗ്രസ് അധ്യക്ഷയായി വരേണ്ടതെന്നും അദ്ദേഹം പറ ഞ്ഞു അവർ അധ്യക്ഷയായി വന്നാൽ പാർട്ടിക്കത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ജമ്മുകശ്മീരിലെ ബന്ദിപ്പുര ജില്ലയിൽ ഗുറൈസ് സെക്ടറിൽ പാക് അധീന കശ്മീരിൽ നിന്ന് നുഴഞ്ഞുകയറാൻ ഭീകരർ നടത്തിയ ശ്രമം തകർത്ത സൈന്യം മൂന്നു ഭീകരരെ വധിച്ചു നിയന്ത്രണരേഖക്കടുത്ത് വനമേഖലയിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ ശ്രീനഗറിൽ അറിയിച്ചു ഭീകരർക്ക് നുഴഞ്ഞുകയറാനായി സാഹ ചര്യം ഒരുക്കുന്നതിന് പാക്കിസ്ഥാൻ സൈന്യം പ്രകോപ്പനമില്ലാതെ നിയന്ത്രണ രേഖയിൽ വെടിവെപ്പും ഷെല്ലാക്രമണവും നടത്തിയതായി കേന്ദ്രങ്ങൾ വെളി പ്പെടുത്തി

ബി ഐ ഏറ്റെടുത്തു പീഡനക്കേസിലെ പ്രതിയും ബി

പി എം

എയുമായ കുൽദീപ് സിംഗ് സെംഗാർ ഉൾപ്പെടെ പതിനൊന്നുപേർക്കെ തിരെ കൊലക്കുറ്റത്തിന് സി ബി ഐ പുതിയ എഫ്

ആർ രജിസ്റ്റർ ചെയ്തു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

തനിക്ക യച്ച കത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് തനിക്ക് വിവരം ലഭിച്ചതെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു പെൺകുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട് കോടതി പരിഗണിക്കണമെന്ന് മുതിർന്ന അഭിഭാഷകൻ വി ഗിരി ആവശ്യപ്പെട്ട ട്ടു

പി ഗവൺമെന്റ് ഉന്നാവ് പീഡനക്കേസ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭയിൽ നിന്ന് ഇറ ങ്ങിപ്പോയി സഭ സമ്മേളിച്ച ഉടൻ ശൂന്യവേളയിൽ കോൺഗ്രസ് നേതാവ് അധിൻ രഞ്ജിൻ ചൌധരിയാണ് പ്രശ്നം സഭയിൽ ഉന്നയിച്ചത് ആഭ്യന്തര മന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പീഡനത്തിനിരയായ പെൺകുട്ടിയും കുടുംബാംഗങ്ങളും സി ബി ഐ കേസ ന്വേഷിക്കുമ്പോഴും ഭീഷണി നേരിടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതി നെതിരെ ബി ജെ

കേന്ദ്രത്തിന് ഇതുസംബന്ധിച്ച നിവേദനം നൽകാൻ പൊതുതാല്പര്യ ഹർജി സമർപ്പിച്ചയാളോട് കോടതി ആവശ്യപ്പെട്ടു

കാറിലുണ്ടായി രുന്ന നാലുപേരിൽ ഒരാളെ പിടികൂടി മൂന്നുപേർ ഓടിരക്ഷപ്പെട്ടു

ഇന്ന് വൈകീട്ടുവരെ വിവിധ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും പിതൃമോക്ഷ ചടങ്ങുകൾ നടക്കുകയാണ് തിരുനാവായ തിരുനെല്ലി കോഴിക്കോട് വരക്കൽ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രങ്ങളോടനുബ ന്ധിച്ച് ആയിരങ്ങൾ രാവിലെതന്നെ ബലിയിടാനെത്തി വരക്കൽ കടപ്പുറത്ത് നാളെ രാവിലെ പത്തുവരെ ബലിതർപ്പണം ഉണ്ടായിരിക്കും

എറണാകുളം ജില്ലയിലെ ആലുവാ മണപ്പുറം ചേലാമറ്റം പാഴൂർ എന്നിവിടങ്ങളിൽ ആയിരങ്ങൾ എത്തിച്ചേർന്നു ഭക്തജനത്തിരക്ക് കണക്കി ലെടുത്ത് കെ എസ്

സി കൂടുതൽ സർവീസ് നടത്തുന്നുണ്ട് ആലുവ ചേലാമറ്റം എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി കർക്കിടക വാവിന് ആലപ്പുഴയിലെ വിവിധ സ്ഥലങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ് തൃക്കുന്നപ്പുഴ ക്ഷേത്രത്തിന്റെ മേൽനോട്ടത്തിൽ അറബിക്കടലിന്റെ തീരത്ത് ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി

പയ്യാമ്പലത്ത് പുലർച്ചെ നാലിന് ചടങ്ങുകൾ ആരംഭിച്ചു മുഴപ്പിലങ്ങാട് കടലോരം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രം തുടങ്ങി ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം രാവിലെ മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്

ആദ്യഘട്ടത്തിൽ ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ കർഷകർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭി ക്കുന്നത്

അവൽക്കുള് വയനാട് അമ്പലവയലിൽ നടുറോഡിൽ വച്ച് യുവതിയെയും യുവാവിനെയും മർദ്ദിച്ച സംഭവംത്തിൽ പ്രതി സജീവാനന്ദനെതിരെ ബലാത്സംഗ ശ്രമമടക്കം വകുപ്പുകൾ ചുമത്തി പൊലീസ് കേസ് എടുത്തു ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ആണ് ചുമത്തിയിരിക്കുന്നത്